കൂടുതൽ വിവരങ്ങളുമായി അനിൽകുമാർ

രാജ്യത്തെ നൂറോളം സ്മാർട്ട് സിറ്റി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും

പദ്ധതി ആവിഷ്ക്കരിക്കുന്നത്രിലൂട്ടെ മഞ്ഞപ്പിത്ത രോഗ നിർണയത്തിനും രോഗ ച്ചികീൽസയ്ക്കും മറ്റുമുള്ള ലാബുകൾ ഉൾപ്പെടെയുള്ള സംവിധാനുങ്ങൾ വികേന്ദ്രീകൃതമാവുകയും അത് രാജ്യത്തെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്യുമെന്ന് കേന്ദ്ര മന്ത്രി പറഞ്ഞു

മഞ്ഞപ്പിത്ത രോഗത്തിനെതിരെയുള്ള ദേശീയ പരിപാടിയുടെ സ്മരണാർത്ഥം ചടങ്ങിൽ പ്രത്യേക തപാൽ സ്റ്റാമ്പും പുറത്തിറക്കി

മഹാരാഷ്ട്രയിലെ റെയ്ഗാഡ് ജില്ലയിലാണ് അപകടമുണ്ടായത്

ദാപോളിയിലെ കൊങ്കൺ കാർഷിക സർവകലാശാലയിലെ ജീവനക്കാരാണ് അപകടത്തിൽപ്പെട്ടത് പ്രകാശ് നാരായണൻ ദേശായ് എന്ന ഒരു യാത്രക്കാരൻ മാത്രമാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് പോലീസ് അറിയിച്ചു അപകടത്തിൽ അതീവ ദുഖം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ചു

പ്രണാമം എന്നു പേരിട്ടിരിക്കുന്നു ഇത്തരത്തിലൊരു പദ്ധതി രാജ്യത്താദ്യമായി നടപ്പില്പ്പിക്കുന്ന സംസ്ഥാനമാണ് അസം

വൃദ്ധമാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നു കണ്ടെത്തിയാൽ അത്തരം ഉദ്യോഗസ്ഥരുടെ മാസ വേതനത്തിന്റെ പത്ത് ശതമാനം മാതാപിതാക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ഗവൺമെന്റ് നിക്ഷേപിക്കും

ഈ വർഷത്തെ ഗാന്ധിജയന്തി മുതൽ പ്രണാമം പദ്ധതി നിലവിൽ വരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു

നരേന്ദ്രമോദി ആപ്പിലൂടെയും മൈ ഗവൺമെന്റ് ഓപ്പൺ ഫോറത്തിലൂടെയും ജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്നതാണ് മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷ ആകാശവാണിയും ദൂരദർശനും പ്രക്ഷേപണം ചെയ്യും

മണ്ണിടിച്ചിലിനെ തുടർന്ന് റോസ്ട് ഗൃതാഗതം തടസ്സപ്പെട്ടതിനാൽ മിക്ക സ്കൂളുകൾക്കും അവധി നൽകി

അതിശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടാകുന്നത് കണക്കിലെടുത്ത് ദുരന്ത മേഖലകളിലേക്ക് വിനോദയാത്രക്കാർ പോകുന്നത് വിലക്കാൻ ജില്ലാ ഭരണകൂടത്തിന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകി

ഗ്രാമങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാതകളിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം താറുമാറായി മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചിട്ടിരുന്ന മാണ്ഡി പത്താൻകോട് ദേശീയപാത ഗതാതത്തിന് തുറന്നു കൊടുത്തു

മറ്റൊരറിയിപ്പ് ഉണ്ടാകുന്നുതുപൂരെ തീർത്ഥാടക സംഘത്തോട് യാത്ര നിർത്തിവയ്ക്കാൻ ജില്ലാ ഭൂര്ണകൂടം അറിയിച്ചു

എം

പ്രസിഡന്റ് ഷെഹ്ബാസ് ഷെരിഫ് എം

ജനാധിപത്യ പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങളുടെ ആധിപത്യമായി കണക്കാക്കുന്നില്ലെന്നും സുതാര്യമായ വോട്ടെടുപ്പ് നടത്താൻ തയ്യാറാകാത്ത മുഖ്യതെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവയ്ക്കണമെന്നും പി

ഭീകരതയ്ക്കും അതുമായി ബന്ധപ്പെട്ട വൃക്തികൾക്കും തെരഞ്ഞെടുപ്പിൽ ആഴത്തിലുള്ള ബന്ധമുണ്ടായിട്ടുണ്ടെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് വക്താവ് ശ്രീമതി ഹെതർ നവേറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം കാലഘട്ടത്തിലെ ബന്ധങ്ങളെയും സ്വാതന്ത്യത്തിന്റെ ആവിഷ്ക്കാരത്തേയും സംബന്ധിച്ചുണ്ടായ ആശങ്കകൾ പാകിസ്ഥാനിലെ മനുഷ്യാവകാശ കമ്മീഷനുമായി പങ്കുവച്ചിട്ടുണ്ടെന്നും ശ്രീമതി ഹെതർ പറഞ്ഞു

സ്പെഷ്യൽ പോലീസ് ഓഫീർ മുദാസിർ അഹമ്മദിനെയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തീവ്രവാദികൾ തട്ടിക്കൊണ്ടു പോയത് സുരക്ഷാ സേന സംഭവസ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്

ജ്യോതിർലിംഗങ്ങളിലൊന്നായി കരുതപ്പെടുന്ന ദിയോഗറിലെ ശിവക്ഷേത്രത്തിൽ നടക്കുന്ന പുരാതന മേള പ്രത്യേക ശ്രദ്ധയാകർഷിക്കുന്നു

എം കെ അധൃക്ഷനുമായ കരണാനിധിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു

തമിഴ്നാട് ഗവർണർ ബെൻവാരിലാൽ പുരോഹിത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ബി ജെ

യുടെ സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവർ കരുണാനിധിയുടെ ആരോഗ്യനില ആരാഞ്ഞ് ആശുപത്രിയിലെത്തിയിരുന്നു

ഇന്ത്യൻ താരം മിഥുൻ മഞ്ജുനാഥ്ട്രന്നെ ന്രിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സൌരവ്വ് ്ക്ഫെനലിൽ പ്രവേശിച്ചത്

മിക്സഡ് ഡബിൾസ് വിഭാഗത്തിൽ ഇന്ത്യൻ ജോഡികളായ റോഹൻ കപൂറും കുഹു ഗാർഗും ഫൈനലിൽ പ്രവേശിച്ചു